ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അവസാനഘട്ട വോട്ടെടുപ്പിനായുള്ള പരസൃപ്രചാരണം അവസാനിച്ചു വോട്ടെടുപ്പ് ഞായറാഴ്ച

സംസ്ഥാനത്തെ മൂന്ന് ബൂത്തുകളിൽ കൂടി റീപോളിംഗ് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മൂഷൻ ്നിർദ്ദേശം ആകെ ഏഴ് ബൂത്തുകളിൽ ഞായ്റാഴ്ച്ച് പ്രിണ്ടും വോട്ടെടുപ്പ്

ലണ്ടൻ ഓഹരിവിപണി പ്യാപ്പാരത്തിന് തുറന്ന് മുഖ്യമന്ത്രി പിണറായി പ്പിജയൻ പശ്ചാത്തല സൌകര്യവികസന്റത്തിന് പണം തടസ്സമല്ലെന്ന് മുഖ്യമന്ത്രി

മുൻ മന്ത്രിയും കോ്ൺഗ്രസ് നേതാവുമായ കടവൂർ ശിവദാസന് നാടിന്റെ അന്ത്യാഞ്ജലി

പി നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി പറഞ്ഞു മധ്യപ്രദേശിലെ ഖാർനോത്തിൽ പ്രചാരണ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

ഹിമാചൽപ്രദേശിലെ സോളനിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യവേ കോൺഗ്രസ് ആധ്യക്ഷൻ രാഹുൽഗാന്ധി നോട്ട് നിരോധ വിഷയത്തിൽ പ്രധാട്ടന്മ്രന്തിക്കെതിരെ വിമർശനം ഉന്നയിച്ചു പാർട്ടി ജനറൽ സെക്രട്ടറി പ്രപിയങ്കാഗാന്ധി വദ്ര മിർസാ പൂരിൽ പ്രചാരണം നടുത്തി

ഇരു പാർട്ടികളും ജനങ്ങൾക്ക് പൊള്ളയായ വാഗ്ദാനങ്ങളാണ് നൽകുന്നതെന്ന് അവർ ആരോപിച്ചു

ബിജെപി അധ്യക്ഷൻ അമിത് ഷാ യും അദ്ദേഹ ത്തോടൊപ്പം ഉണ്ടായിരുന്നു

എ ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ താഴെത്തട്ടുവരെ എത്തിക്കാൻ സാധിച്ചതായും അതിനാൽ ഈ ഭരണം വീണ്ടും കൊണ്ടു വരാൻ ജനങ്ങൾ തീരുമാനിച്ചെന്നും ശ്രീ

സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളേയും ഉയർത്തി ക്കൊണ്ടു വരാൻ എൻ

എ ഗവൺമെന്റ് നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചതായും പാർട്ടി അധ്യക്ഷൻ പറഞ്ഞു രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടുകൾ ഏകപക്ഷീയമാണെന്നും എന്നാൽ തങ്ങൾക്ക് ജനങ്ങളുടെ പിന്തുണ ഉണ്ടെന്നും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളന ത്തിൽ സംസാരിക്കുക യായിരുന്നു അദ്ദേഹം കോൺഗ്രസ് സത്യം മാത്രമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പറയുന്നത് അന്തിമ വിജയം സത്യത്തിന് മാത്രമായി രിക്കുമെന്നും ആര് ഭരിക്കണമെന്ന് ജനങ്ങൾ തീരുമാനിച്ചതായും ശ്രീ രാഹുൽഗാന്ധി പറഞ്ഞു

ഇത് സ്ബ്ന്ധിച്ച നിർദ്ദേശം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നൽകി കള്ളവോട്ട് നടന്നെന്ന സ്ഥിരീകരണത്തെ തുടർന്നാണ് തീരുമാനം

എച്ച്

നേരത്തെ നാലു ബൂത്തുകളിൽ റീ പോളിംഗ് നടത്താൻ കമ്മീഷൻ തീരുമാനിച്ചിരുന്നു കാസർകോട്ടെ മൂന്ന് ബൂത്തുകളിലും കണ്ണൂരിലെ ഒരു ബൂത്തിലുമാണ് റീ പോളിംഗ് നടത്തുന്നത് ഇതോടെ സംസ്ഥാനത്തെ ഏഴു ബൂത്തുകളിൽ റീ പോളിംഗ് നടക്കും

റിട്ടേണിംഗ് ഓഫീസർമാരുടെ റിപ്പോർട്ടുകളും ചീഫ് ഇലക്ട്രൽ ഓഫീസറുടെയും ജനറൽ ഒബ്സർവറുടെയും റിപ്പോർട്ടു കളും മറ്റു തെളിവുകളും വിശകലനം ചെയ്താണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനമെടുത്തത് കണ്ണൂർ റീപോളിംഗ് മറ്റെന്നാൾ വീണ്ടും വോട്ടെടുപ്പ് നടക്കുന്ന കണ്ണൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ പരസ്യപ്രചാരണം അവസാനിച്ചു വിവിധ രാഷ്ട്രീയ നേതാക്കൾ പ്രചാരണത്തിൽ സജീവമായിരുന്നു വിശദാംശങ്ങളു മായി ആകാശവാണി കണ്ണൂർ പ്രതിനിധി കെ

ശശിധരൻ

മണ്ഡല്ലത്തിലെ വോട്ടെണ്ണൽ നടക്കുന്നത് കുസാറ്റ് ക്യാമ്പസിലാണ്

ലണ്ടൻ ഓഹരി വിപണി ഇന്ന് വ്യാപാരത്തിന് തുറന്നുകൊടുത്തു കേരള ഇൻഫ്രാസ്ട്രക്ച്ചർ ഇൻവെസ്റ്റ്മെൻറ് ഫണ്ട് ബോർഡ് കിഫ്ബി പുറത്തിറക്കിയ മസാല ബോണ്ട് ലണ്ടൻ ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്യുന്നതിനോട നുബന്ധിച്ചാണ് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അധികൃതർ കേരള മുഖ്യമന്ത്രിയെ ക്ഷണിച്ചത് ഇത്തരമൊരു ചടങ്ങിലേക്ക് ക്ഷണിക്ക പ്പെടുന്ന ഇന്ത്യയിലെ ആദ്യ മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ

വിപണി തുറന്നുകൊടുത്തശേഷം സ്റ്റോക്ക് എക്സ്ചേ ഞ്ച് അധികൃതരുമായി മുഖ്യമന്ത്രി ആശയവിനിമയം നടത്തി

വാക്കിൽ മാത്രമല്ല പ്രവൃത്തിയിലും കേരളം നിക്ഷേപ സൌഹൃദമാണെന്നും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പശ്ചാത്തല സൌകര്യം ഒരുക്കുന്നതിന് സാമ്പത്തിക പരിമിതി ഒരിക്കലും തടസ്സമാകില്ലെന്നും കേരളത്തിൽ മുതൽ മുടക്കാൻ യു

യിലെ സംരംഭകരെ സ്വാഗതം ചെയ്യുന്ന തായും അദ്ദേഹം കൂട്ടിച്ചേർത്തു

നേരത്തെ കൊല്ലം ആനന്ദവല്ലീശ്വരത്തെ സ്വവസതിയിൽ പ്പാതുദർശനത്തിന് വെച്ച ഭൌതിക ശരീരത്തിൽ പാർട്ടി പ്രപ്പ്പർത്തകരും പൊതുജനങ്ങളും അന്തിമോപചാരമർപ്പിച്ചു സംസ്കാന് ഗവൺമെന്റിനുവേണ്ടി മന്ത്രി കെ രാജുവും മുഖ്യമന്ത്രിക്കുവേണ്ടി മന്ത്രി ജെ

കോൺഗ്രസ് നേതാവ് ഏ

ആന്റണി സിഫ്റ്റ്ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പി

ഗുരുദാസൻ ശബരിനാഥ് തുടങ്ങിയ നേതാക്കളും വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു

അഡ്മിഷൻ ഭിന്നശേഷിക്കാരന് സ്കൂൾ പ്രവേശനം തടഞ്ഞ സ്വകാര്യ സ്കൂൾ അധികൃതരോട് മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് വിശദീകരണം ആവശ്യപ്പെട്ടു കുട്ടികളുടെ രക്ഷകർത്താക്കളിൽ നിന്നും മുൻകൂറായി പണം വാങ്ങിയശേഷം പ്രവേശനം നൽകാതിരിക്കുകയാണുണ്ടായത്